മേഖലയിലെ വികസനത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രധാമന്ത്രി നരേന്ദ്രമോദി

ജമ്മു കാശ്മീരിലെ വികസന്റ് പ്ലവ്ർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുമെന്ന് ആവ്ർത്തിച്ച് ലഫ്റ്റനന്റ് ഗവർണർ

കൊറോണ മരണം റിപ്പോർട്ട് ചെയ്തു

ഉണ്ടാവരുതെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പദ്ധതി മേഖലയിലെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും ആയിരക്കണക്കിന് തൊഴിൽ സൃഷ്ടിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

മേഖലയിലെ കുടുംബങ്ങൾക്ക് കുടിവെളളം എത്തിക്കുന്നതിനുളള പദ്ധതിയ്ക്കും പ്രധാനമന്ത്രി ഇന്നലെ തുടക്കമിട്ടു

പ്രാദേശികതലത്തിൽ ഭൂർണ്ണും മെച്ചപ്പെടുത്താൻ മാത്രമല്ല വികസന പ്രവർത്തനങ്ങൾ ത്വരിക്ക്പ്പെടുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് സ്ഥാധീക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു

പ്ലെഞ്ചായത്തീരാജ് സ്ഥാപനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാകേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി അദ്ദേഹം സൂചിപ്പിച്ചു

അഫ്ഗാനിസ്ഥാനിൽ സമാധാനവും സുരക്ഷയും സ്ഥിരതയും ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടിയെയും ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു പ്രദേശത്ത് സംഘർഷങ്ങൾ അവസാനിക്കുമെന്നും സമാധാനം പുനസ്ഥാപിക്കപ്പെടുമെന്നും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഫ്ഗാൻ മണ്ണിൽ ആവർത്തിക്കില്ലെന്നുമാണ് പ്രതീക്ഷ സ്ഥിരതയുള്ള ഭരണ സംവിധാനത്തിനും ഇന്ത്യ പിന്തുണയേകുമെന്ന് രവീഷ്കുമാർ പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളുടേയും താൽപ്പര്യം സംരക്ഷിക്കാൻ അഫ്ഗാനിലെ ഭരണ സംവിധാനത്തിനൊപ്പം നിൽക്കുമെന്നും ഇന്ത്യ അറിയിച്ചു ഇന്നലെയാണ് അമേരിക്കയും താലിബാനും ദോഹയിൽ സമാധാന ഉടമ്പടിയിൽ ഒപ്പു വച്ചത്

കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രിമാരുടെ നേരിട്ടുളള മേൽനോട്ടത്തിൽ രോഗ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പറഞ്ഞു

സംഘർഷ സംഭവങ്ങളിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടായോ എന്ന് പരിശോധിക്കാൻ രണ്ട് സംഘങ്ങൾക്കും കമ്മീഷൻ രൂപം നൽകി

സംഘർഷം ബാധിച്ചവരേയും ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളേയും വടക്കുകിഴക്കൻ ഡൽഹിയിലെ പോലീസ് കൺട്രോൾ വിഭാഗത്തിലും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും

എഫിനെയും പ്രഡൽഹി പോലീസിനെയും വിന്യസിച്ചതായി ഡൽഹി പോലീസ്കൃ ജോയിന്റ് കമ്മീഷണർ ശ്രീവാസ്തവ അറിയിച്ചു പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപ്പിച്ചിട്ടുണ്ട് ക്രമസമാധാന നില പാലിക്കാനും സമാധാനം നിലന്റിർത്താനുമാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു അതേ സമയം സാമൂഹ്ട്ട് മാധ്യമങ്ങൾ ഉത്തരവാദിത്തതോടെ ഉപയോഗിക്കണമെന്നും അ്നാവശ്യ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി കിഷൻ റെഡ്സി ഹൈദരാബാദിൽ പറഞ്ഞു

നാളെ ബിലാസ്പൂരിൽ ഗുരുഘാസിദാസ് സർവ്വകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും സർവ്വകലാശാല പുതുതായി പണികഴിപ്പിച്ച അഞ്ച് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

എസ്

കമാൻഡോകൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലന കേന്ദ്രം ഷൂട്ടിങ്ങ് റേഞ്ച് പാർപ്പിട സൌകര്യങ്ങൾ എന്നിവ കെട്ടിട സമുച്ചയത്തിലുണ്ട് ഉച്ചയ്ക്കുശേഷം കൊൽക്കത്തിയിൽ നടക്കുന്ന പൊതു സമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും

ഇന്റർനാഷണലിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ ലക്ഷ്യം മുൻനിർത്തി സംസ്ഥാന ഗവൺമെന്റിന്റെ പാർപ്പിട ഷദ്ധ്യതിയായ ലൈഫ് മിഷന്റെ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്തവർക്കും വീട് നിർമിച്ചു നൽകാനുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഷ്യമുന്ത്രീ പറഞ്ഞു

പൊങ്കാല ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന ഉന്നതതലയോഗം വിലയിരുത്തി

ഡൽഹിയിലും ഹിമാചൽ പ്രദേശിലും ഇന്നലെ പെയ്ത മഴ ജനജീവിതം ദുസഹമാക്കി

സംസ്ഥാനത്തെ ഉയർന്ന പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്തു

ഇന്നും ഹിമാചലിലെ മിക്ക പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ചക്കും മഴയ്ക്കും സാദ്ധ്യതയുണ്ടെന്ന് ഷിംലയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഡൽഹിയിലും പരിസരപ്രദേശങ്ങളിലും പെയ്ത മഴ റോഡ് വ്യോമഗതാഗത്തെ സാരമായി ബാധിച്ചു

ഡൽഹിയിലെത്തേണ്ട വിമാനങ്ങൾ ലഗ്നൌ അമൃത്സർ അഹമ്മദാബാദ് ജയ്പ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് തിരിച്ചുവിട്ടത് തലസ്ഥാനത്ത് ഇന്നും നേരിയ തോതിൽ മഴയുണ്ട് മെഡിറ്ററേനിയൽ മേഖലയിലുണ്ടായ ചുഴലിക്കാറ്റിന്റെ ഭാഗമായാണ് മഴപെയ്തതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

് പ്രമുഖ വ്യവസായിയുടെ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകൾ പരിശോധിച്ചപ്പോഴാണ് നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത് വ്യവസായിയുടെ ഉരുക്ക് സംസ്കരണ പണമിടപാട് സ്ഥാപനങ്ങളിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച റെയ്ഡ് നടത്തിയത്

രാജ്യത്തെ പരമ്പരാഗത സമുദായമായ മലയ് മുസ്തീം ഭൂരിപക്ഷത്തിനു മേൽക്കൈയുള്ള സഖ്യത്തിനാണ് യാസിൻ നേതൃത്വം നൽകുന്നത്

മൂന്നു വിക്കറ്റ് നേടിയ ട്രെന്റ് ബോൾട്ടാണ് ഇന്ത്യയെ തകർത്തത്

മെക്സിക്കൻ ഓപ്പണിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായംകൂടിയ താരം കൂടിയാണ് നദാൽ

ഹൈദരാബാദിൽ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര സുരക്ഷ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിലെ കേന്ദ്ര പദ്ധതികളെ കുറിച്ച് യുവജനങ്ങൾ ബോധവാൻമാരാകണമെന്നും അവയെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു